കർണാടക നിയമസഭ തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു

ഒരു ദിവസത്തെ സന്ദർശനത്തിനാടുയി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ജമ്മുകൾമീരിൽ

ഇന്ത്യയുടെ പി വി സിന്ധു ഇന്ന് സെമി പോരാട്ടത്തിനിറങ്ങും

മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്ഥാമി അവതരിപ്പിച്ച വിശ്വാസ പ്രമേയത്തിൽ സഭയിൽ തിങ്കളാഴ്ചയും ചർച്ച തുടരും വിശദാംശങ്ങളുമായി കവിത സുനു

ഡി കുമാരസ്വാമിയോട് ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് ഗവർണർ മുഖ്യമന്ത്രിക്ക് ഇന്നലെ വീണ്ടും കത്തയച്ചിരുന്നു കുതിരക്കച്ചവടം നടക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉയരുന്നതും അത്തരം പരാതികൾ തനിക്ക് ലഭിക്കുകയും ചെയ്തതിനാൽ ഇന്നലെ തന്നെ വിശ്വാസ വോട്ട് തേടണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ പത്തു ദിവസമായി സംസ്ഥാനത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഗവർണർ ശ്രദ്ധിക്കാത്തതിൽ ആശ്ചര്യപ്പെടുന്നുവെന്ന് എച്ച്

കുമാരസ്വാമി ഗവർണറുടെ കത്തിന് മറുപടിയായി പറഞ്ഞു ഗവർണർക്ക് വിശ്വാസ വോട്ട് വിഷയത്തിൽ ഇടപെടാൻ അധികാരമില്ലെന്ന് കാട്ടി മുഖ്യമന്ത്രി എച്ച്

ന്യൂസ് ഡസ്ക് ആകാശവാണി

സൈനികരുമായി ആശയവിനിമയം നടത്തുന്ന ശ്രീ രാജ്നാഥ്സിങ് അതിർത്തിയിലെ നിലവിലെ സ്ഥിതിയും വിലയിരുത്തും കത്തുവ ജില്ലയിൽ രണ്ട് പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവ്വഹിക്കും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിങും രാജ്യരക്ഷാ മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്

രജൌരി ജില്ലയിലെ നൌഷേര സെക്ടറിൽ സൈനിക പോസ്റ്റുകളേയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തുകയായിരുന്നു

ഇന്ത്യൻ ഭാഗത്തു നിന്ന് ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

നിക്ഷേപകരുടെ താത്പരൃങ്ങളെ സംരക്ഷിക്കുന്നതിനും നിയമവിധേയമല്ലാതെയുള്ള നിക്ഷേപ പദ്ധതികളെ നിയന്ത്രിക്കുന്നതിന് ബൃഹത്തായ നടപടികളാണ് ബില്ലിൽ ശുപാർശ ചെയ്യുന്നത് നിയമ വിരുദ്ധമായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് തടവുശിക്ഷ അടക്കമുള്ളവ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു

ഇന്നലെ മുംബൈയിൽ അദ്ദേഹം പൊതുമേഖലാ ബാങ്കുകളുടെ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി കൂടുതൽ വിവരങ്ങളുമായി കവിതാ സുനു

കിട്ടാക്കട നിർണയം അവശ്യ മേഖലകളിൽ വായ്പ ലഭ്യമാക്കൽ തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ ഇനിയും പരിഹരിക്കേണ്ടതായുണ്ടെന്നും ശ്രീ

ധനനയ തീരുമാനങ്ങൾക്ക് ഉദ്ദേശ ഫലപ്രാപ്തിയിലുള്ള കുറവ് മന്ദഗതിയിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയിൽ വായ്പാ നിക്ഷേപ വളർച്ച അവശ്യ മേഖലകളിൽ വായ്പാ ലഭ്യത ഉറപ്പാക്കൽ എന്നീ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു നഷ്ടം കണക്കാക്കൽ നിരീക്ഷണ വൃവസ്ഥകൾ ശക്തിപ്പെടുത്തൽ തിരിച്ചുപിടിക്കൽ ശ്രമങ്ങൾ മെച്ചമാക്കൽ തട്ടിപ്പ് സാധ്യതകൾ കൈകാര്യം ചെയ്യാനുള്ള ആഭ്യന്തര നിയന്ത്രണ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തൽ എന്നിവയും ചർച്ചയിലുൾപ്പെട്ടു ഡിജറ്റൽ പണമിടപാട് വൃവസ്ഥ ശക്തമാക്കേണ്ടതിന്റെ ആവശൃകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൊല്ലം എറണാകുളം പൊന്നാനി എന്നിവിടങ്ങളിൽ കടൽ ക്ഷോഭവും രൂക്ഷമാണ് കൊല്ലത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞ് മുന്നുപേരെ കാണാതായി വിഴിഞ്ഞത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ നാല് പേർക്ക് വേണ്ടിയും തിരച്ചിൽ തുടരുകയാണ് എറണാകുളത്ത് മൂവാറ്റുപുഴ താലൂക്കിൽ കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് വർധിക്കുന്നതിനാൽ കല്ലാർകുട്ടി ഉൾപ്പെടെ മൂന്ന് ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു കാസർകോട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

പ്രകൃതിക്ഷോഭങ്ങൾ അടക്കമുള്ള ഏത് അടിയന്തിര ഘട്ടത്തെയും നേരിടുന്നതിനു വേണ്ടിയാണ് സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്

ആസാമിലെ പ്രളയ ബാധിത മേഖലകളിൽ എൻ ഡി

എഫ് സംസ്ഥാന ഭരണകൂടവുമായി ചേർന്ന് രക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്

സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

എണ്ണ കപ്പൽ പിടിച്ചെടുത്തായുള്ള വിവരം ഐ

യുടെ വെബ്സൈറ്റിലൂടെയാണ് ഇറാൻ പുറത്തു വിട്ടത് നിയമ നടപടികൾ കൈക്കൊണ്ട് കൂടുതൽ അന്വേഷണങ്ങൾക്കായി കപ്പലിനെ ഇറാൻ ഭരണ കൂടത്തിന് കൈമാറി

കപ്പലിനെ വിട്ടയച്ചില്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ബ്രിട്ടൻ വിദേശകാര്യ സെക്രട്ടറി ജറെമി ഹണ്ട് അറിയിച്ചു സമുദ്രമേഖലയിലെ സ്വാതന്ത്യത്തെ ഹനിക്കുന്ന നടപടികളാണ് ഇറാൻ കൈക്കൊള്ളുന്നതെന്ന് ഹണ്ട് അറിയിച്ചു ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം രൂക്ഷമാകുന്നതിനിടെയാണ് ബ്രിട്ടന്റെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടികാട്ടുന്നത്

ആറ് മണിക്കൂറോളം നീണ്ട് ചോദ്യം ചെയ്യലിൽ റോസ് വാലി ഗ്രൂപ്പുമായുള്ള കാരാർ സംബന്ധിച്ചും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും പ്രസേൻജിത്തിനെ ഇ ഡി ചോദ്യം ചെയ്തു ബംഗാളി നടി റിതുപർണ സെൻഗുപ്തയേയും കേസുമായി ബന്ധപ്പെട്ട് ഇ

ചോദ്യം ചെയ്തു

സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല

ചാവേർ സ്ഫോടനമാണോ നടന്നതെന്ന് വൃക്തമായിട്ടില്ല

അമേരിക്ക സ്ഫോടനത്തെ ശക്തമായി അപലപിച്ചു

ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ജപ്പാന്റെ നസോമി ഒകുഹാരെയെ തോൽപ്പിച്ചാണ് സിന്ധു സെമിയിൽ കടന്നത്

ഇതോടെ വെള്ളി മെഡൽ ജേതാക്കളായ ഇന്ത്യ സ്വർണ്ണമെഡലിന് അർഹരായി